ബന്ധവും ആഗോള പങ്കാളിത്തവും ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമൃന്ത്രി നരേന്ദ്രമോദി

പൂനെയിൽ തുടക്കമാകും

നോർവെ പ്രധാനമന്ത്രി എർന സൊൽബർഗ് ഉദ്ഘാടന പ്രഭാഷണം നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തുടങ്ങിയവർ പങ്കെടുക്കും ഒബ്സർവർ റിസേർച്ച് ഫൌണ്ടേഷൻ എന്ന പണ്ഡിത സംഘടനയും വിദേശകാരൃ മന്ത്രാലയുവും സംയുക്തമായാണ് അതീവ രാഷ്ട്രീയ തന്ത്രപ്രധാന പ്രാധാന്യമുള്ള വാർഷിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്

ഈ വർഷം നടക്കുന്ന ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയെ ഉറ്റുനോക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശിച്ച ശേഷം ആരംഭിച്ച നടപടികളിലെ പുരോഗതി താരോ കോനോ വിശദീകരിച്ചു

കേന്ദ്ര മന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് അറിയിച്ചതാണ് ഇക്കാര്യം കൂടുതൽ വിവരങ്ങളുമായി വിജേഷ്

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ സംവാദ പരിപാടിയായ മൻകി ബാത്തിലൂടെയാണ് ആകാശവാണി വീണ്ടും ജനപ്രിയമായതെന്നും അദ്ദേഹം പറഞ്ഞു ആകാശവാണിയുടെ എഫ്

രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ സ്ഥികാർട്ട് എഫ്

ആകാശവാണിയുടെ വാർത്താ കൈമാറ്റം സ്വാഗതാർഹ്മായ നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു

എ ഗവൺമെന്റ് വാർത്താമാധ്യമിങ്ങളിൽ പരസ്യം നൽകാൻ വൻതുക ചെലവഴിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു

എം ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്നു് സേവനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൃഷി ഉൽപ്പാദന മേഖലയിലെ മികച്ച പ്രകടനമാണ് വളർച്ച വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്നതെന്നാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ പ്രവചനം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

പ്രതിശീർഷ ജി

നിക്ഷേപ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഇതിനായി നിരവധി നടപടികൾ സ്വീകരിച്ചതായി അതോറിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

പി മാർ എം

എ മാർ എന്നിവർക്കെതിരേയുള്ള ക്ട്സുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് ശിക്ഷ വീസ്രിച്ചത്

തടവുശിക്ഷ ലഭിച്ചതിനെതുടർന്ന് മന്ത്രി പി

പ്രമുഖ ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് പത്രം പാൽ വിതരണം ആശുപത്രികൾ വിനോദസഞ്ചാര മേഖല എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നിർബന്ധിച്ച് കടകൾ അടപ്പിക്കില്ലെന്നും സ്വകാരൃ വാഹനങ്ങൾ തടയില്ലെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു മോട്ടോർ വാഹന തൊഴിലാളികൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്

എസ് ആർ

സി യിലെ പ്രമുഖ യൂണിയനുകളും പണിമുടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ശബരിമല സർവീസിനെ പണിമുടക്ക് ബാധിക്കില്ലെന്ന് യൂണിയനുകൾ അറിയിച്ചു

പണിമുടക്കിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സമരസമിതി നേതാക്കൾ വേണാട് എക്സ്പ്രസ് തടഞ്ഞു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി

കുസാറ്റ് സർവകലാശാലകൾ ഇന്നും നാളെയും നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി

ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലികളിൽ അഞ്ച് ശതമാനം സംപൂർണ്ം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മഹാരാഷ്ട്ര കായിക മന്ത്രി വിനോദ് തവാഡെ അറിയിച്ചു

സീനിയർ ബോയ്സ് വിഭാഗത്തിൽ കരുത്തരായ ഷില്ലോങ് എഫ് സി മേഘാലയക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് എം

പി തോൽവി വഴങ്ങിയത് മുംബൈയിൽ നടന്ന ഫൈനലിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയില്ല ആറു ഗോളുകൾ നേടി എം

യുടെ പ്രതാപ് ടൂർണമെന്റിലെ ഗോൾഡൻ ബോൾ സ്വന്തമാക്കി

ജയിച്ചാൽ മാത്രമേ കേരളത്തിന് കാർട്ടറിലേയ്ക്കു നേരിയ സാധ്യതയെങ്കിലും നിലനിർത്താനാകു

കാർട്ടറിൽ പുരുഷ ടീം ആന്ധ്രയെയും വനിതകൾ ഹരിയാനയെയും നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു

വികസ്വര രാജൃങ്ങളിലെ അടിസ്ഥാന സൌകരൃ വികസനത്തിൽ ശ്രദ്ധയൂന്നാനായി മറ്റൊരു സ്ഥാപനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കിം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ലോകബാങ്ക് സി ഇ ഒ ആയ ക്രിസ്റ്റലിന ജോർജിയേവ താൽക്കാലിക പ്രസിഡന്റാവും

ടി ഡയറക്ടർ ജനറൽ ബി

ബാലകൃഷ്ണൻ പറഞ്ഞു

വമ്പൻ കമ്പനികളുമായി നെയ്ത്തുകാരെ ബന്ധിപ്പിക്കാൻ മന്ത്രാലയം ശ്രമിക്കുകയാണെന്ന് ടെക്സ്റ്റൈൽസ് സെക്രട്ടറി രാഘവേന്ദ്ര സിങ് പറഞ്ഞു കൊൽക്കത്തയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും

രോഗം ഭേദമാക്കാമെന്നു തെളിയിക്കപ്പെട്ടതിനാലാണ് ബിൽ കൊണ്ടു്പ്പന്നതെന്ന് നിയമ സഹമന്ത്രി പി

ചൌധരി പറഞ്ഞു

ഇന്ത്യ നോർവെ ബന്ധത്തിന്റെ പുത്തൻ കാലഘട്ടത്തിനാണ് തുടക്കമാകുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ അവർ പറഞ്ഞു